ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ ചേരും സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ വിലയിരുത്തും

സ്വർണ്ണമെഡൽ നേടി ഇന്ത്യ മെഡൽപട്ടികയിൽ ഒൻപതാം സ്ഥാനത്ത്

ജെ

ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ

ജെ

ജെ

ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുളള അവലോകനം യോഗത്തിൽ ചർച്ചയാകുമെന്ന് കരുതുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ വോട്ടെടുപ്പും അടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്

ഗുണകരമായ ഭരണ നിർവഹണവും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്ന നയങ്ങളും യോഗത്തിലെ മുഖ്യ വിഷയങ്ങളാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ

ഡിസംബർ ഒന്ന് മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരും ്കേന്ദ്ര വ്യോമയാന്ന് വക്കുപ്പ്മന്ത്രി സുരേഷ് പ്രഭുവാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് ഡൽഹിയിൽ ് പറഞ്ഞത് പുതിയ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ആളില്ലാ വിമാ്നങ്ങൾ പകൽ സമയത്ത് കാഴ്ചയുടെ പരിധിയിൽപ്പെടുന്ന് രീതിയിൽ വേണം പറക്കുവാൻ

മറ്റ് വിമാനങ്ങൾ പറക്കുന്ന റെഡ്സോൺ മേഖലയിൽ ഡ്രോണുകൾ അനുവദിക്കില്ല

ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാവുന്നതാണ്

പോലീസ് വകുപ്പിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്ന പ്രവർത്തനങ്ങളുടെ പരിണിതഫലമാണ് ഇതെന്നും ഡോ

കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികളിൽ സ്പഷ്ടമായ മാറ്റങ്ങൾ കണ്ടുവരുന്നതായും അദ്ദേഹം പറഞ്ഞു അൽ ബദൽ തീവ്രവാദ സംഘടനയിൽ പുതുതായി നിയുക്തരായ നാല് തീവ്രവാദികളെ അടുത്തിടെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി നാല് ജീവനുകളെയും നാല് കുടുംബങ്ങളെയും ദ്യൂർത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി ശ്രീ

ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം നേടിയ ജമ്മുകാശ്മീരിലെ അന്താരാഷ്ട്ര വുഷു കായികതാരം സൂര്യ ഭാനു പ്രതാപ്പ് സിങ്ങിനെ ഡോ വൈദ് അഭിനന്ദിച്ചു

ഒൻപതിനായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ചേർന്നിട്ടുള്ളവർ കോടതിയിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് വാദം സെപ്റ്റംബർ മൂന്നിന് കോടതി നിശ്ചയിച്ചിരിക്കുന്നത് വിജയ് മല്യയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കക്ഷികൾ സമീപിച്ചിരുന്നതായി അധികൃതർ പറഞ്ഞു

എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത രണ്ട് കേസുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിജയ് മല്യയ്ക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്

പരിണാം മഞ്ജുഷ എന്ന പേരിൽ സിബിഎസ്ഇ തനതായ ഒരു ഡിജിറ്റൽ അക്കാദമിക സങ്കേതം രൂപീകരിച്ചിട്ടുണ്ട് ഡിജി ലോക്കറുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കൂകയാണ് പരിണാം മഞ്ജുഷ വഴിയോ ഡിജി ലോക്കർ വഴിയോ ലഭിക്കുന്ന ഡിജിറ്റൽ രേഖയിൽ സിബിഎസ്ഇ പര്യീക്ഷ കൺട്രോളറുകളുടെ ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കും

റ്റി ആക്ട് പ്രകാരം ഈ ഡിജിറ്റൽ രേഖ നിയമവിധേയമാണ്

്താരിഖ് കജ്മി മുഹമ്മദ് അക്തർ എന്നിവർക്കെതിരെയാണ് പ്രത്യേക കോടതി ജഡ്ജി ബബിതാ റാണി ശിക്ഷ വിധിച്ചിരിക്കുന്നത്

പ്രതികൾ രാജ്യത്തെ കോടതികൾക്ക് നേരെ മാത്രമല്ല രാജ്യത്തിനെതിരെയുമാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ നിരീക്ഷിച്ചു

പ്രളയക്കെടുതികളുടെ സംയോജിത്രിഅന്തിമ കണക്കെടുപ്പ് രണ്ടു ദിവസത്തിനകം തയ്യാറാക്കണമെന്നും സാമ്പത്തിക സഹായത്തിനുവേണ്ടിയുള്ള പ്രിമേയ് കേന്ദ്രത്തിന് അയച്ചുകൊടുക്കണമെന്നും ്മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

മെഡൽ നിലയിൽ ഇന്ത്യ ഒമ്പതാം സ്ഥാനത്താണ്

ഏഷ്യൻ ഗെയിംസിൽ ഈ രണ്ടിനങ്ങളിലും ഇന്ത്യ ആദ്യമായാണ് സ്വർണ്ണം നേടുന്നത് ജാവലിൻ ത്രോയിൽ യുവതാരം നീരജ് ചോപ്ര ദേശീയ റിക്കോർഡോടെയാണ് സ്വർണ്ണം നേടിയത്

എട്ട് സ്വർണ്ണവും പതിമൂന്ന് വെള്ളിയും ഇരുപത് വെങ്കലവും ഇന്ത്യ നേടി

ജപ്പാൻ രണ്ടാം സ്ഥാനത്തും കൊറിയൻ റിപ്പബ്ലിക് മൂന്നാം സ്ഥാനമത്തുമാണ് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഫൈനലിൽ കടന്നതോടെ ഈ ഇനത്തിലും ഇന്ത്യയ്ക്ക് മെഡൽ ഉറപ്പായി

ടേബിൾ ടെന്നീസ് കാർട്ടർ ഫൈനലിലും ഇന്ത്യൻ പുരുഷ വിഭാഗം സ്ഥാനമുറപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹാനോയിൽ മൂന്നാമത് ഇന്ത്യൻ സമുദ്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഇന്ത്യൻ സമുദ്രമേഖലയുടെ സാമ്പത്തിക പ്രാധാന്യത്തെയും അവർ സമ്മേളനത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചു ലോകത്തെ ഏറ്റവും തിരക്കേറിയ സമുദ്രജലപാതകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇന്ത്യൻ സമുദ്രമേഖല ഇന്ത്യൻ സമുദ്രമേഖലയുടെ സാധ്യതകൾ വിനിയോഗിക്കപ്പെടുമ്പോൾ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണെന്ന് അവർ പറഞ്ഞു സാമ്പത്തിക അഭിവൃദ്ധിയും സമുദ്രമേഖലയുടെ സുരക്ഷിതത്വും പരസ്പര പൂരകങ്ങളാണെന്നും ശ്രീമതി

ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈന സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന വേളയിൽ സുഷമ സ്വരാജിന്റെ പ്രസ്താവത്തിന് നിർണ്ണായക പ്രാധാന്യമാണുള്ളത്

മ്യാൻമറിന്റെ സൈനിക ജനറൽമാരും കമാൻഡർ ഇൻ ചീഫായ ജനറൽ മിൻ ആംങ് ഹെയ്ലിങും വടക്കൻ റാക്കിനിൽ നടന്ന മനുഷ്യക്കുരുതിക്ക് ഉത്തരവാദികളാണെന്നും ഇവർക്കെതിരെ കുറ്റം ചുമത്തണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണസമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്

റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗയ് ലാവ്റോവും അഫ്ഗാൻ ഭരണാധികാരി അഷ്റഫ് ഗാനിയും തമ്മിൽ നടന്ന ടെലഫോൺ സംഭാഷണത്തെ തുടർന്നാണ് സമാധാന ചർച്ച മാറ്റി വെച്ചത്